തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്കോള്ജ് സംഭവത്തിൽ ഗവർണർ വൈസ്ചാൻസലറോട് ആടിയന്തര റിപ്പോർട്ട് തേടി അഖിൽ വധശ്രമക്കേസിലെ മുഖ്യപ്രതി ശിവരഞ്ജിത്ത് സംസ്ഥാന മത്സരത്തിൽ പ്പങ്കെടുത്തിട്ടില്ലെന്ന് അമ്പെയ്ത്ത് അസോസിയേഷൻ രണ്ട് വർഷത്തിനകം ആറ് ലക്ഷം വീടുകളിൽ വാട്ടർ അതോ റിറ്റി പുതുതായി കൂടിവെള്ള് കണക്ഷൻ നൽകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി

കർണാടകയിൽ വിമത എംഎൽഎമാരുടെ രാജി സ്പീക്കർ സ്വീകരിക്കുന്നില്ലെന്ന ഹർജികളിൽ സുപ്രീംകോടതി വാദം തുട രുന്നു

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് രാജിക്കത്ത് പരിഗണിക്കാതെ അയോഗ്യരാക്കാൻ സ്പീക്കർ ശ്രമിക്കുകയാണെന്ന് എം എൽഎമാരുടെ അഭിഭാഷകൻ കോട തിയെ അറിയിച്ചു അതേസമയം രാജിയിലും അയോഗ്യതയിലും സ്പീക്കർക്ക് നിർദേശം നൽകാനാകില്ലെന്നും നടപടിയിൽ ഭരണഘടനാ ലംഘ നമുണ്ടോയെന്ന് പരിശോധിക്കാൻ മാത്രമേ കോടതിക്ക് കഴിയൂ വെന്നും ചീഫ് ജസ്റ്റിസ് വാക്കാൽ നിരീക്ഷിച്ചു കർണാടകയിൽ അഞ്ചു ദിവസത്തിനകം ബിജെപി ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസി ഡന്റ് ബി എസ് യെദ്യുരപ്പ പറഞ്ഞു വ്യാഴാഴ്ച കോൺഗ്രസ് ജെഡി എസ് സഖ്യ ഗവൺമെന്റ് തകരുമെന്നും അന്നൂതന്നെ പുതിയ ഗവൺമെന്റ് അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം ബാംഗ്ലൂരിൽ വിശ്വാസം പ്രകടിപ്പിച്ചു മൂന്ന് ദിവസം കൊണ്ട് പിമത് എം എൽ എമാരുടെ പിന്തുണ സഖ്യ ഗവൺമെന്റിന് നേടിയെടുക്കാൻ കഴി യില്ലെന്നും യെദ്യൂരപ്പ വ്യക്തമാക്കി ഒരു കാരണവശാലും മുഖ്യമന്ത്രി എച്ച്ഡി കുമാരസ്വാമി വിശ്വാ സവോട്ടിൽ ജയിക്കില്ലെന്നും യെദ്യൂരപ്പ പറഞ്ഞു

ബിജെപ്പിയിൽ നീന്ന് എംഎൽഎമാർ ചോർന്നു പോകുമെന്ന പേടിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അറസ്റ്റ് ചെയ്തത്തിനെതിരെ വിമത എംഎൽഎ റോഷൻ ബെയ്ഗ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകി

അച്ചടക്ക നടപടിയുടെ ഭാഗമായി റോഷൻ ബെയ്ഗിനെ നേരത്തെ കോൺഗ്രസിൽ നിന്നു സസ്പെന്റ് ചെയ്തിരുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളജ് സംഭവത്തിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ഇടപെട്ടു കേരള സർവ്വകലാ ശാല വൈസ് ചാൻസലറോട് അടിയന്തര റിപ്പോർട്ട് തേടിയതായി ഗവർണർ ട്വിറ്ററിൽ അറിയിച്ചു

കലാലയങ്ങളിലെ തെറ്റായ പ്രവണതകൾ ഒഴിവാക്കാൻ നിയമം കൊണ്ടുവരുമെന്ന് മന്ത്രി ഡോ

അതിന്റെ പേരിൽ സ്ഥാപനത്തെ കളങ്കപ്പെടുത്തരുതെന്നും എസ് എഫ്ഐ യുടെ ശവദാഹം നടത്തരുതെന്നും മന്ത്രി സ്വകാര്യ ചാന ലിനോട് പറഞ്ഞു അഖിൽ വധശ്രമക്കേസിലെ മുഖ്യപ്രതികളായി ശിവരഞ്ജിത്തി നെയും നസീമിനെയും തെളിവെടുപ്പിനായി ക്സ്റ്റ്ഡിയിൽ വാങ്ങാൻ തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി യിൽ പൊലീസ് ഇന്ന് അപേക്ഷ നൽകൂം ഇന്നലെയാണ് ഇവരെ റിമാന്റ് ചെയ്തത് മൂന്ന് പ്രധാന പ്രതികൾ കൂടി കേസിൽ പിടിയിലാവാനുണ്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളജിൽ കുത്തേറ്റ വിദ്യാർത്ഥി അഖിലിന്റെ മൊഴിയ്ടെടുക്കാൻ പൊലീസ് ഇന്ന് വീണ്ടും ഡോക്ടർമാരുടെ അനുമതി തേടും

ഐസിയുവിൽ നിന്ന് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് അഖി ലിനെ മാറ്റിയതിനാൽ മൊഴിയെടുക്കാൻ ഡോക്ടർമാർ അനുവാദം നൽകിയേക്കും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളജിലെ അഖിൽ വധ ശ്രമക്കേസിൽ മുഖ്യപ്രതി ശിവരഞ്ജിത്ത് സംസ്ഥാന അമ്പെയ്ത്ത് മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ലെന്ന് അമ്പെയ്ത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജോറിസ് പൌലോസ് പറഞ്ഞു ആർച്ചറി അസോ സിയേഷനിൽ ഇയാൾ അംഗമല്ലെന്നും ജില്ലാ മത്സരങ്ങളിൽപോലും പങ്കെടുത്തതായി അറിയില്ലെന്നും അദ്ദേഹം സ്വകാര്യ ചാനലിനോട് വ്യക്തമാക്കി

ഇക്കാ രൃത്തിൽ പിഎസ് സി വിജിലൻസ് വിഭാഗം അന്വേഷണത്തിന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്

ആറുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാര്യവട്ടം സിഐ യുടെ നേതൃത്വത്തിൽ പ്രത്യേകസംഘമാണ് കേസ് അന്വേഷിക്കുന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളജ് വിഷയം കേരള ത്തിന് പുറത്തെ ഏജൻസി അന്വേഷിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ തിരുവ്വന്തപുരത്ത് ആവ ശ്യപ്പെട്ടു കേസിലെ മുഖ്യപ്രതി പിഎസ് സി റാങ്ക് പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരനായതിനെകുറിച്ച് പിഎസ് സി പ്രഖ്യാപിച്ച അന്വേ ഷണം കാര്യക്ഷമമാകില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ഗവർണർ ഇക്കാര്യത്തിൽ ഗവൺമെന്റിന് നിർദേശം നൽകണമെന്നും സുധീരൻ പറഞ്ഞു പിഎസ് സി ചെയ്ർമാൻ എം കെ സക്കീറിന്റെ മലപ്പുറം പെരു മ്പടപ്പിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി യൂണിവേഴ്സിറ്റി കോളജിലെ വധശ്രമക്കേസിൽ മുഖ്യ പ്രതിയടക്കം ര്ണ്ട് പേർ പിഎസ് സി പൊലീസ് റാങ്ക് പട്ടികയിൽ ഉയർന്ന് സ്ഥാനം നേടിയതിൽ ഉന്നതതല അന്വേഷണം ആവശ്യ പ്പെട്ടായിരുന്നു മാർച്ച് പ്രവർത്തകരെ പൊലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി

തിരുവനന്തപുരത്ത് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജല അതോറിറ്റി ത്രൈമാസ അവലോകന യോഗത്തിലാണ് തീരു മാനം

സംസ്ഥാന ഹജ്ജ് കമ്മറ്റി മുഖേന മദീന്റയിൽ എത്തിയ മല യാളി തീർത്ഥാടകരുടെ ആദ്യസംഘം ഇന്ന് മക്കയിലേക്ക് ഈ മാസം ഏഴിനാണ് കരിപ്പൂരിൽ നിന്ന് ഇവർ മദീനയിൽ എത്തിയ ത് കരിപ്പൂരിൽ നിന്ന് വിമാന സർവീസ് ശനിയാഴ്ച സമാപിക്കും

ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്കും ബൌളർ ബൂമ്രക്കും വിശ്രമം നൽകിയേക്കും ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പരാജയപ്പെട്ടതിനെ തുടർന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ച ധോണിയെ ടീമിൽ നില നിർത്തുന്ന കാര്യം ചർച്ചയായേക്കും

അഹമ്മദാബാദിൽ നടക്കുന്ന ഇന്റർ കോണ്ടിനന്റൽ കപ്പിൽ ഇന്തൃ ഇന്ന് കരുത്തരായ സിറിയയെ നേരിടും ആദ്യ കളിയിൽ താജ്കിസ്ഥാനോടും രണ്ടാം മത്സരത്തിൽ ഉത്തരകൊറിയയോടും തോറ്റ ഇന്ത്യക്ക് ടൂർണമെന്റിൽ അവസാനത്തെ മത്സരമാണ് ഇന്ന് ജയിച്ചാലും ഇന്ത്യക്ക് ഫൈനലിൽ എത്താനാവില്ല സർഫാസി നിയമം മൂലം ഉണ്ടായ വിഷയങ്ങൾ പഠിച്ച് പരിഹാര നടപടികൾ നിർദേശിക്കാൻ രൂപീകരിച്ച നിയമസഭാ അഡ്ഹോക്ക് കമ്മറ്റി യോഗം നാളെ കണ്ണൂരിൽ ചേരും പൊതുജനങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും ജപ്തി നടപടി നേരിടുന്നവരിൽ നിന്നും ഇത് സംബന്ധിച്ച അഭിപ്രായങ്ങളും പരാതികളും നിർദേശങ്ങളും കമ്മീഷൻ സ്വീകരിക്കും

ശർമ്മ എംഎൽഎയാണ് കമ്മറ്റി ചെയർമാൻ മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരുന്ന അഡ്ഹോക്ക് കമ്മറ്റി തി രുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളില്ല പരാതികളും സ്വീകരിക്കും സംസ്ഥാനത്ത് വെളളിയാഴ്ച വരെ കുനത്ത മഴയ്ക്ക് സാധ്യത യെന്ന് കാലാവസ്ഥാ നിരീക്ഷണിക്കേന്ദ്രം തിരുവനന്തപുരത്ത് അറി യിച്ചു മറ്റന്നാൾ മലപ്പുറം ജില്ലയിലും വെളളിയാഴ്ച ഇടുക്കി ജില്ല യിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപ്പിച്ചു മലപ്പുറം വയനാട് എറണാ കുളം ഇടുക്കി ജില്ലകളിൽ ഇന്നും കോഴിക്കോട് കണ്ണൂർ മലപ്പു റം ഇടുക്കി ജില്ലക്ളിൽ നാളെയും ജാഗ്രതാ നിർദേശം പുറപ്പെടു വിച്ചിട്ടുണ്ട്

ഇതര സ്ംസ്ഥാന തൊഴിലാളികൾക്ക് ഗവ ആശുപത്രികളിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്ന ആവാസ് അഷുറൻസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും

ആശുപത്രി കളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്

പ്രവാസി വൃവസായി കണ്ണൂരിലെ സാജൻ പാറയിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണം സി ബി

സാജൻ ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യം വളച്ചൊടിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും ബീന പറഞ്ഞു കോഴിക്കോട് ജില്ലയിൽ ജപ്പാൻ കുടിവ്വെളള പദ്ധതി പ്രവൃത്തിക്കായി സ്ഥലം ഏറ്റെടുത്ത തലക്കൂളത്തൂർ സ്റ്റീഫൻ കുന്നിൽ അതിർത്തി തർക്കം കാരണം പ്രൈപ്പ് ഇടാൻ ഇതുവരെ സാധിക്കാത്തിനാൽ പ്രശ്ന പരിഹാരത്തിന് തലക്കുളത്തൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ കോഴിക്കോട് ജില്ലാ കലക്ടർ ചുമതലപ്പെടുത്തി പദ്ധതിയുടെ പ്രവൃത്തി അവലോകന ത്തിനായി കലക്ട്രേറ്റ് ചേമ്പറിൽ ചേർന്ന യോഗത്തിലാണ് നിർദേശം പാലക്കാട് ജില്ലയില്ലെ മലയോര പ്രദേശങ്ങളോട് ചേർന്ന ജനവാസ മേഖലകളിൽ വീണ്ട്ടും കാട്ടാനകളിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു മലമ്പുഴ ആറങ്ങോട്ടുകുള മ്പിലും കിഴക്കഞ്ചേരി കോട്ടേക്കുളം ഭാഗങ്ങളിലുമാണ് കാട്ടാനകളിറങ്ങി ഭീതിപരത്തിയത് ആനകളുടെ ആക്രമണ ത്തിൽ നെല്ല് വാഴ റബ്ബർ കൃഷികൾക്ക് നാശ നഷ്ടമുണ്ടായി

കുവൈത്തിലേക്കും സർവ്വീസ് തുടങ്ങാൻ ഗോ എയറിന് പദ്ധതിയുണ്ട്